സംസ്ഥാനത്തെ മഴയാണ് കേരളത്തിൽ പ്രളയം സൃഷ്ടിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

അന്താരാഷ്ട്ര ബുദ്ധിസ്റ്റ് കോൺക്ലേവ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ന്യൂഡൽഹിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും

ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും സ്വർണ നേട്ടവുമായി ഇന്ത്യ

തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡാമുകൾ തുറന്നതാണ് പ്രളയത്തിന് കാരണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി

കാലടി പെരുമ്പാവൂർ ആലുവ പ്രദേശങ്ങളില്ല് വെള്ളപ്പൊക്കത്തിന് ഇടുക്കി ഇടമലയാർ ഡാമുകളിൽ നിന്നുള്ള വെള്ളം മാത്രമല്ല കാരണം

നിലമ്പൂരിൽ വെള്ളപ്പൊക്കമുണ്ടായതു ചാലിയാറിലെ വെള്ളംമുലമാണ് ഈ നാല് നദികളിലും ഒരു ഡാമുമില്ല

ചാലക്കുടി പുഴയിൽ കേരളത്തിന്റെ നിയന്ത്രണത്തിൽ ഷോളയാർ പെരിങ്ങൽക്കുത്ത് ഡാമുകളാണുള്ളത്

പറമ്പിക്കുളം തമിഴ്നാടിന്റെ ഷോളയാർ ഡാമുകളിൽ നിന്നുള്ള വെള്ളം കൂടി വന്നതോടെ ചാലക്കുടിയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാവുകയായിരുന്നു

ഇടമലയാർ തുറക്കാൻ നിർബന്ധിക്കപ്പെട്ട സാഹചര്യത്തിൽ അപ്പോൾത്തന്നെ ഇടുക്കി കൂടി തുറന്നുവിട്ടാൽ വൻ നാശമുണ്ടാവുമായിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി

പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ദുരിതാശ്വാസ നിധികളിലേയ്ക്ക് പ്രവാസികൾ അന്താരാഷ്ട്ര സംഘടനകൾ തുടങ്ങിയവർ നൽകുന്ന സംഭാവനകളെ സ്വാഗതം ചെയ്യുന്നതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ വ്യക്തമാക്കി കേരളത്തിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച വിദേശ രാജ്യങ്ങളുടെ നടപടിക്ക് ഇന്ത്യ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു

എ

ആലപ്പുഴയിലെ ചെങ്ങന്നൂർ പത്തനംതിട്ടയിലെ കോഴംഞ്ചേരി എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ തൃശൂരിലെ ചാലക്കുടി തുടങ്ങിയ സ്ഥലങ്ങളിലെ ദുരിതാശ്വാസ കൃാമ്പുകളാണ് മുഖൃമന്ത്രി സന്ദർശിക്കുന്നത്

വെള്ളപ്പൊക്കത്തെ തുടർന്ന് അടച്ച വിമാനത്താവളം ഞായറാഴ്ച പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്

വൽസാദ് ജില്ലയിലെ ജുജുവ ഗ്രാമത്തിൽ നടക്കുന്ന പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ നിർമ്മിച്ച ഒരു ലക്ഷത്തിലധികം വീടുകളുടെ ഒന്നിച്ചുള്ള ഇ ഗൃഹപ്രവേശം പ്രധാനമന്ത്രി നിർവ്വഹിക്കും പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഏകദേശം ഒരു ലക്ഷം വീടുകൾ ഗുജറാത്തിൽ പൂർത്തിയാക്കിക്കഴിഞ്ഞു

തെക്കൻ ഗുജറാത്തിലെ വത്സലദ് നവ്സാരി തപി സൂറത്ത് ഡാഗ്സ് എന്നീ അഞ്ച് ജില്ലകളിൽ നിന്നുള്ള ഗുണഭോക്താക്കൾ ചടങ്ങിൽ പങ്കെടുക്കും

ബിംസ്റ്റെക്കിലെ ഏഴ് അംഗരാജ്യങ്ങളിലെ നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പു നൽകിയതായി നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയം വൃക്തമാക്കി

റാലിയോടെയാണ് ചിതാഭസ്മം കടലിലേക്ക് ഒഴുക്കാൻ കൊണ്ടുപോകുകയെന്ന് ബി ജെ

ആദ്യ രണ്ട് ടെസ്റ്റുകളും ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു

തങ്ങൾ നേടിയ വിജയം കേരളത്തിലെ പ്രളയ ബാധിതർക്ക് സമർപ്പിക്കുന്നതായി ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി അറിയിച്ചു

ദുരന്തം മറികടക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നല്ല സംഭാവനയാണ് വിവിധ സേനാവിഭാഗങ്ങൾ നൽകിയത് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി മടങ്ങാനൊരുങ്ങുമ്പോൾ ജനകീയസേനയായി അവർ മാറിയിട്ടുണ്ട്